ധനനയം പ്രഖ്യാപിച്ചു

ഐ

എക്സ് മീഡിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രി ന് പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു

കേസിന്റെ വാദം ബീഹാറിൽ നിന്ന് ഡൽഹിയിലേയ്ക്ക് മാറ്റാൻ സുപ്രീംകോടതി ഉത്തരവ്

ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം

റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വാർത്താ സമ്മേളനത്തിലാണ് നിരക്കുകൾ പ്രഖ്യാപിച്ചത്

കഴിഞ്ഞ ആഴ്ച വാദ്രയ്ക്ക് ഇടക്കാല ജാമ്യം അനുര്പദിച്ച ഡൽഹിയിലെ പ്രാദേശിക കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാനും അന്വേഷണത്തിൽ സഹകരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിനു മുന്നിൽ ഹാജരായി എൻഫോഴ്സ്മെന്റിന്റെ വിഭാഗത്തെ കൂടാതെ സി ബി ഐ യും കേസ് അന്വേഷിക്കുന്നുണ്ട്

ഇതേ കേസിൽ സി ബി ഐ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ അനുമതി സംഘടിപ്പിച്ച് നൽകുന്നതിനു വേണ്ടി കാർത്തി ചിദംബരം പണം കൈപ്പറ്റി എന്നു കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു

ആർ

എഫ് ഐ

ബി

ഐ എസ് എഫ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സായുധ സേന

കേസിന്റെ വിചാരണ ആറ് മാസത്തിനകം പൂർത്തിയാക്കാനും ഡൽഹിയിലെ സാകേത് കോടതിക്ക് നിർദ്ദേശം നൽകി അഭയകേന്ദ്രങ്ങളിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരമോന്നത കോടതി ബീഹാർ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചു രണ്ടാഴ്ചയ്ക്കകം വിചാരണയുടെ രേഖകൾ ബീഹാർ സി

ഐ കോടതിയിൽ നിന്ന് സാകേത് കോടതിയില്പേക്ക് മാറ്റാനും സുപ്രീംകോടതി ഉത്തരവിട്ടു

നിയമവിരുദ്ധ നിക്ഷേപ പദ്ധതികളും മറ്റും തടഞ്ഞ് സാധാരണക്കാരെ തട്ടിപ്പുകളിൽ നിന്നും രക്ഷിക്കാനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അനധികൃതമായി സാമ്പത്തിക നിക്ഷേപ ഇടപാടുകൾ നടത്തുന്നവർക്ക് കനത്ത പിഴ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭേദഗതി ബിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചുനൽകുന്നതിനുള്ള കർശന വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

വിശദാംശങ്ങളുമായി ലിൻസ ഏഷ്യ പസഫിക് മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന കമ്പനി സെക്രട്ടറിമാരുടെ നിയമനം സംബന്ധിച്ചും ഇരു രാജ്യങ്ങളിലെയും പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിമാരുടെ പദവി ഉയർത്തുന്നതും ധാരണാപത്രങ്ങളിൽ ഉൾപ്പെടുന്നു തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഭരണ നിർവ്വഹണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നമീബിയ ഇലക്ട്രൽ കമ്മീഷൻ പാനമ ഇലക്ട്രൽ ക്ട്രെബ്യൂണൽ എന്നിവയുമായി ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾക്കും മന്ത്യിസഭ അംഗീകാരം നൽകി ഇതിനു പുറമെ ഇന്ത്യ നോർവെ സ്മുദ്ര സംവാദം ബ്രസീലുമായി ഒപ്പുവെച്ച ഹോമിയോപതി പ്രമ്പരാഗത വൈദ്യശാസ്ത്രം എന്നിവ സംബന്ധിച്ചു ധാരണിപ്പത്ം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു

ആഫ്രിക്കയിലെ വികസന പരിപാടികളിൽ ഇന്ത്യയും യു

യും യോജിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണാപത്രത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി ആഫ്രിക്കയുടെ വികസനത്തിനും ഉതകുന്ന വിവിധ പരിപാടികൾ നടപ്പാക്കുന്നതിൽ ഇരു രാഷ്ട്രങ്ങളുടെയും പങ്ക് നിർണയിച്ച് കൊണ്ടുള്ള പ്രവർത്തനചട്ടക്കൂടിനാണ് കേന്ദ്രം അനുമതി നൽകിയത് ജൈവ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ സംയുക്തമായി നടത്താനുള്ള ഫിൻലാൻഡുമായുള്ള ധാരണാപത്രത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി ഇതോടൊപ്പം ഇ ഗവേണൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്താനുമായുള്ള പരസ്പര സഹകരണത്തിനും മുൻകാല പ്രാബല്യത്തോടെ അനുമതി നൽകി മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കം നിൽക്കുന്നവരുടെ സാമ്പത്തിക സംവരണം സംബന്ധിച്ച് പരിഷ്കരിച്ച മെമ്മോറാണ്ടത്തിനും കേന്ദ്രമന്ത്രിസഭ ഇന്നലെ മുൻകാല പ്രാബല്യത്തോടെ അനുമതി നൽകി

പരസ്പരം സഹകരിക്കാവുന്ന വിവിധ മേഖലകളെക്കുറിച്ചും യോഗത്തിൽ ഇരുപക്ഷവും ചർച്ച നടത്തി

ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഉണ്ടാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ പിഴയും ശുപാർശ ചെയ്യുന്നു നിയമഭേദഗതി വഴി വ്യാജ ചലച്ചിത്ര നിർമ്മാണവും അനധികൃത ഓൺലൈൻ പ്രദർശനവും ഒഴിവാക്കാൻ കഴിയുമെന്നും ചലച്ചിത്ര വ്യവസായത്തെ സമ്പന്നമാക്കാനും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന വികസനത്തിനും ശൃംഖല വ്യാപനത്തിനുമുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി അനുമതി നൽകി

എ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുമെന്ന് മന്ത്രി ഇ

ജയരാജൻ നിയമസഭയിൽ പറഞ്ഞു

പാലക്കാട് കോച്ച് ഫാക്ടറി കേന്ദ്രം ഉപേക്ഷിച്ച സാഹചരൃത്തിൽ ആ സ്ഥലം ഏറ്റെടുത്ത് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കും സംസ്ഥാനത്ത് വ്യവസായം തുടങ്ങാൻ ലക്ഷ്യമിട്ടിട്ടുള്ളവർക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ ലൈസൻസ് നൽകുമെന്നും ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ മന്ത്രി ഇ

ജയരാജൻ നിയമസഭയെ അറിയിച്ചു

വിദർഭ തുടർച്ചയായ രണ്ടാം തവണയാണ് കിരീടം സ്വന്തമാക്കുന്നത്

കാർഗിൽ പ്രദേശത്ത് മൂന്നു മുതൽ ആറ് വരെ സെ മീ

അതേസമയം കാർഗിൽ നിന്ന് ദ്രാസ് ബതാലിക് ലേ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട്

ഇന്നലെ ഇവിടുന്നുള്ള മിക്ക്വാ്റും വ്യോമ സർവീസുകളും റദ്ദാക്കിയിരുന്നു

എസ് ഭീകരർക്ക് ഒരാഴ്ചക്കുള്ളിൽ സിറിയയിലെ അവരുടെ അവസാന താവളവും നഷ്ടമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്കൻ സഖ്യസേനയും സിറിയൻ ജനാധിപത്യ സേനയും ചേർന്ന് സിറിയയിലെയും ഇറാഖിലെയും ഐ

അടുത്ത ആഴ്ചയോടെ ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി

ലോകബാങ്ക് തലവനായിരുന്ന ജിം യോങ്ങ് കിം രാജിവച്ച ഒഴിവിലാണ് നിയമനം

ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു